ഐ

നിന്ന് ഇന്ന് രാത്രി കൊച്ചിയിലേക്ക് പുറപ്പെടും

പ്രത്യേക ട്രെ്യിൻ തിരുവനന്തപുരത്തെത്തി രോഗലക്ഷണമുള്ള പേരെ ഏഴ് ആശുപത്രിയിലേക്ക് മാറ്റി

ആഗോള മരണസംഖ്യ മൂന്നു ലക്ഷം കടന്നു

കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ ഉൾപ്പെടാത്ത വിഭാഗങ്ങൾക്ക് പരിഗണന ലഭിക്കും ആദ്യ ദിവസം ചെറുകിട വൃവസായങ്ങൾക്കും നികുതിദായകർക്കും ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു് ഇന്നലെ കുടിയേറ്റ തൊഴിലാളികൾക്കും ചെറുകിട്ട് രൂാമ്മാത്ര കർഷകർക്കും ആശ്വാസമായി ഒട്ടേറെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു

ഇയാളെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളജ് ആശുപത്രിയിലേക്ക് മാറ്റി

ലോക്ക് ഡൌണിനിടയിൽ കേരളത്തിലേക്ക് യാത്രക്കാരുമായി എത്തുന്ന ആദ്യ ട്രെയിനാ്ണിത്

അതിനിടെ കൊല്ലം ജില്ലയിലെ പുനലൂർ തൃക്കരുവ ചാത്തന്നൂർ എന്നീ പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങൾ നീക്കി ജില്ലാ കളക്ടർ ബി അബ്ദുൾ നാസർ ഉത്തരവിട്ടു

വിശദവിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

ഇവരെ മെഡിക്കൽ കോളെജ് ആശുപത്രിയിലും കോവിഡ് കെയർസെന്ററുകളിലുമാക്കി

എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രമാണ് സംസ്ഥാനത്ത് ട്രെയിൻ നിർത്തുക റിസർവേഷനുള്ളതും രോഗലക്ഷണങ്ങളില്ലാത്തതുമായ യാത്രക്കാരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കുക കെൽട്രോൺ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ ബാഗേജുകൾ അണുവിമുക്തമാക്കാൻ കെൽട്രോൺ അൾട്രാ വയലറ്റ് ബാഗേജ് ഡിസ്ഇൻഫെക്ട്ർ തയ്യാറാക്കി

തിരുവനന്തപുരം കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ ഉടൻ സ്ഥാപിക്കും

ഇന്നലെ പത്തു പേർക്കാണ് ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ചത് വിശദവിവരങ്ങളുമായി ആകാശവാണി കാസർകോഡ് ജില്ലാ പ്രതിനിധി പി

കളക്ടറേറ്റിലെ ഇൻഫർമേഷൻ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരോടും ഗൃഹ നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി

ദുബൈയിൽ നാദാപുരും സ്പ്ദേശി കുനിയിൽ മജീദ് മൊയ്തുവും കുവൈറ്റിൽ പ്ലാന്നൂർ സ്വദേശി അഷ്റഫ് എരഞ്ഞൂലും ഒമാനിൽ എറണാകുളം സ്വദേശി വിപിൻ സേവ്യറുമാണ് മരിച്ചത്

നഷ്ടമാണ് ഇത് പരിഹരിക്കുന്നതിന് കേന്ദ്രസർക്കാർ സഹായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

വൈ പ്രകാരമുള്ള റേഷൻ വിതരണം ആരംഭിക്കുന്നതിനാൽ ഇതിനു ശേഷം സൌജന്യക്കിറ്റുകളുടെ വിതരണം ഉണ്ടാവില്ല റേഷൻകാർഡിലെ അവസാനത്തെ അക്കം അനുസരിച്ചാണ് വിതരണ തിയതി ക്രമീകരിച്ചിരിക്കുന്നത്